ജെ

നൽകുന്ന എൻ ഡി എയ്ക്ക് കേവല ഭൂരിപക്ഷവും കടന്ന് വൻ മുന്നേറ്റം

ജെ

കേരളത്തിലും പഞ്ചാബിലും ഒഴികെ മറ്റെല്ലാ സംസ്ഥാ ന് നങ്ങളിലും കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലും ബി

ജെ

ജനവിധി മാനിക്കുന്നതായി കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി

എസ് എന്നീ കക്ഷികൾ ഓരോ സീറ്റ് വീതം നേടിയിട്ടുണ്ട്

ജെ

ഗാന്ധിനഗറിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോ

മുന്നിട്ട് നിൽക്കുന്ന മറ്റ് ബിജെപി നേതാക്കൾ കേന്ദ്രമന്ത്രി മോഹൻ ഭൂായ് കുണ്ടരിയ ജഷ്വ ന്ത്സിൻഹ് ഭഭോർ മൻസുക്ഭായ് വസ്ഥൂർ ്ഡോ്

ഡൽഹിയിൽ ആകെയുള്ളൂ ഏഴ് ലോക്സഭാ സീറ്റുകളിലും ബിജെപി മുന്നിട്ട് നിൽക്കുകയാണ്

നാല് സീറ്റുകളിൽ എൻ സി പി യും കോൺഗ്രസ് ആൾ ഇന്ത്യ മജ്ലി സ് ഇ ഇത്തെഹദുൾ മുസ്ത്രീംമീൻ സ്വതന്ത്രസ്ഥാനാർത്ഥി എന്നിവർ ഓരോ സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റുകളിൽ നോർത്ത് ഗോവ സീറ്റിൽ ബിജെപിയുടെ ശ്രീപദ് നായ്കും സൌത്ത് ഗോവ സീറ്റിൽ കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ്കോ സർദിൻഹയും മുന്നിട്ട് നിൽക്കുന്നു

ജെ

ത്രിപുരയിലെ ത്രിപുര ഈസ്റ്റിലും ത്രിപുര വെസ്റ്റിലും ബി ജെ

ജമ്മുകാശ്മീരിലെ ശ്രീ നഗറിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുളള ലീഡ് ചെയ്യുമ്പോൾ ഉദംപൂരിൽ ബി ജെ പി നേതാവ് ഡോ

എസ് എട്ടിടത്തും ബി ജെ പി നാല് ഇടത്തും കോൺഗ്രസ് മുന്നിടത്തും എ

എം ഒരു മണ്ഡലത്തിലും ലീഡ് ചെയ്യുന്നു

ഡി

ആലപ്പുഴയാണ് എൽ ഡി

ശക്തമായ ത്രികോണ മത്സരം നടക്കു മെന്ന് പ്രതീക്ഷിച്ച തിരുവനന്തപുരുത്തുക് പത്തനംതിട്ടയിലും തൃശ്ശൂരിലും യുഗ്ധിഎഫ് സ്ഥാനാർത്ഥികൾ എതി രാളികളേക്കാൾ മികച്ച ലീഡ്ാണ് നേടിയത്

സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായി ഇത് മാറാനും സാധ്യതയുണ്ട്

ദേശീയ ശ്രദ്ധ ആകർഷിച്ചു മത്സരം അരങ്ങേറിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ മുന്നേറുന്നു

ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫിന്റെ സി

ഡി എഫ് ആധിപത്യം പുലർത്തിയിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫിലെ അടൂർ പ്രകാശ് മുന്നിലാണ്

സംസ്ഥാനത്ത് ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചതായി അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

യു ഡി എഫിന്റെ ജയം ചരിത്രവിജയമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി എൽ ഡി എഫ് അംഗീകരിക്കുന്നതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

നാം ഏവരും ഒരുമിച്ചു നിൽക്കുകയാണെങ്കിൽ കെട്ടുറപ്പുള്ളതും അതിശക്തവുമായ നവഭാരതത്തെ സൃഷ്ടിക്കാനാകുമെന്ന് ശ്രീ

ഇന്ത്യ അത്രിപ്പേഗം അഭിവൃദ്ധിയിലേക്ക് കുതിയ്ക്കുമെന്ന് ശ്രീ

ഇന്ത്യൻജനതയ്ക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി എൻ

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു രാഷ്ട്രീയ പ്രീണനങ്ങൾക്കും സ്വജനപക്ഷപാതത്തിനും ജാതീയതയ്ക്കും എതിരായി വികസനത്തിനും ദേശീയതയ്ക്കുമാണ് ജനം തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിയത് അതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് ട്ിറ്റർ സന്ദേശത്തിൽ ശ്രീ ഷാ പറഞ്ഞു

ഈയൊരു ഫലസൂചന അന്തിമമാണെങ്കിൽ രാജ്യത്തെി ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഉയരുന്നതിൽ പ്ാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്തുകൊണ്ട് പ്രാജയപ്പെട്ടു എന്ന് കോൺഗ്രസ്സ് പരിശോ ധിക്കേണ്ടതുണ്ടെന്ന് പാർട്ടി വക്താവ് ജയ്വീർ ഷെർഗിൽ ന്യൂഡൽഹി യിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം വിവിപാറ്റുമായി അവ ഒത്തു നോക്കുമെന്നും മമതാബിറ്റെന്റ്ജി പറഞ്ഞു